പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സംസ്ഥാനത്തെ പ്രചാ രണ രംഗം വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും

ഇന്നും താപനില മൂന്ന് ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്

അറബ് മാന്ത്രിക ചികിത്സയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ ആളെ വടകരയിൽ അറസ്റ്റ് ചെയ്തു ൾ ൽ ൾ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമ നിർദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും

എറണാകുളത്ത് ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും പത്രിക നൽകിയവരിൽ ഉൾപ്പെടുന്നു മിക്ക സീറ്റുകളിലും പ്രമുഖ സ്ഥാനാർത്ഥികളുടെ അപരൻമാരും പത്രിക നൽകിയിട്ടുണ്ട് വയനാട് മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരേയും അണ്ട് അപര സ്ഥാനാർത്ഥികൾ പത്രിക നൽകി

വിവിധ കക്ഷികളുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ വരും ദിവ സങ്ങളിൽ മണ്ഡലങ്ങളിൽ എത്തും

ഇന്ന് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷ നിൽ പങ്കെടുക്കും കോഴിക്കോട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമ ചന്ദ്രൻപിള്ള ഇന്നു വരുന്നുണ്ട് പത്തനംതിട്ടയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നെത്തും രാവിലെ റാന്നി ഇട്ടിപ്പാറയിൽ അദ്ദേഹം പ്രസംഗിക്കും

സമാനമോ അതിനേക്കാൾ അനുകൂലമോ ആയ സാഹചരൃമാണ് ഇപ്പോഴെന്ന് മുഖൃമന്ത്രി വിലയിരുത്തി സിപിഐഎമ്മിനെതിരെ ഒന്നും പറ്യുന്നില്ല് എന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാട് രാഷ്ട്രീയ പാപ്പരത്തമാ ണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണൻ പറഞ്ഞു ആർഎസ്എസിനെതിരെ പോരാടുന്ന ഇടതുപ ക്ഷത്തിന് എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങളുടെ തിരിച്ചടി യുണ്ടാകുമെന്ന ഭയമാണ് രാഹുൽ ഗാന്ധിക്കെന്ന് കോടിയേരി കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു ൃ കോഴി ക്കോട്ടെ ആരോ പണ വിധേയനായ യുഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നടപടി വേണമെന്ന് സിപിഐഎമ്മും ബിജെ പിയും ആവശ്യപ്പെട്ടു എംപി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരി ടാൻ അദ്ദേഹം തയാറാകണമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മറ്റി അംഗം എളമരം കരീം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോൺഗ്രസ് തയാറാകണമെന്നും എളമരം ആവശ്യപ്പെട്ടു ആരോപണത്തിൽ എഐസിസി നേതൃത്വവും കെപിസിസി പ്രസി ഡന്റും നിലപാട് വൃക്തമാക്കണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ടി

ജയചന്ദ്രനും ആവശ്യപ്പെട്ടു അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നും ജയചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ദീർഘ വീക്ഷണമില്ലാത്ത നടപടികൾ രാജ്യത്തിന് ഒരിക്കലും ഗു ണം ചെയ്യില്ലെന്ന് സി

ഐ ദേശീയ സെക്രട്ടറി ഡി രാജ പറഞ്ഞു

രാജ അഭിപ്രായപ്പെട്ടു

മാധ്യമ ങ്ങൾ മാത്രമാണ് ഈ വിഷയം വിവാദമാക്കി മാറ്റുന്നതെന്നും ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിന് നൽകിയ അഭിമുഖത്തിൽ അമിത് ഷാ വൃക്തമാക്കി

ഈ ബൂത്തുകളിൽ പോളിങ്ങ് ഉദ്യോഗസ്ഥ രായി നിയമിക്കുന്നത് പൂർണമായും സ്ത്രീകളെ ആയിരിക്കും

സേന കൾക്കു പുറമെ ഇവിടങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ലൈവ് വീഡിയോ കവറേജും സജ്ജീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു

ഇവർക്ക് ഭയമില്ലാതെ വോട്ടു ചെയ്യുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുമെന്ന് അറിയി ച്ചുണ്ട് മലപ്പുറം ജില്ലയിലെ ഏറനാട് വാലില്ലാപുഴയിൽ സ്റ്റാറ്റിക് സർവൈ ലൻസ് വിഭാഗത്തിന്റെ വാഹന പരിശോധനയിൽ രണ്ട് ലക്ഷത്തിൽ പരം രൂപ പിടികൂടി വരും ദിവസങ്ങളിലും പരിശോധന കർശന മായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു വയനാട് ജില്ലയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് സ്ഥാനാർത്ഥികളിൽ നിന്ന് പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്ത ഇനത്തിൽ ചെലവായ തുക ഈടാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീ സർ ടീക്കാറാം മീണ നിർദേശം നൽകി

സ്ഥാനാർത്ഥികൾ നിയമവിരുദ്ധമായി സ്ഥാപിച്ച പരസൃ സാമഗ്രി കൾ ജില്ലാ ഭരണകൂടം നീക്കം ചെയ്യുകയായിരുന്നു ഇതിന് വേണ്ടി വന്ന തുക തിരിച്ചടക്കാൻ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും അവർ കമ്മീ ഷന് അപ്പീൽ നൽകുകയായിരുന്നു സൂര്യാഘാതമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രി യിൽ ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു പട്ന സ്വദേശിയായ സുജിത് ബിന്ദ് ആണ് മരിച്ചത് ബുധനാഴ്ച്ച ചെങ്കൽ കാറിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇയാൾ കുഴഞ്ഞ് വീണത് ശരീരത്തിൽ പൊള്ളിയ പാടുകളില്ലെങ്കിലും ആന്തരീകാവ യവങ്ങൾക്കുണ്ടായ സൂര്യാഘാതമായിരിക്കാം മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു

എറ ണാകുളത്താണ് രണ്ട് പേർക്ക് സൂര്യാഘാതമുണ്ടായത് വയനാട് ഒഴികെ ജില്ലകളിൽ ഇന്നും താപനില ശരാശരിയിൽ നിന്ന് മൂന്ന് ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറി യിപ്പ് നൽകി സൂര്യാഘാത സൂര്യാതപ സാധൃത ഒഴിവാക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി

വേനൽ കടുത്തോടെ കുപ്പിവെള്ള വിപണി യിലെ ചൂഷണം ഇല്ലാതാക്കാനാണ് സപ്ലൈകോയുടെ നടപടി

മലപ്പുറം കോട്ടൂർ സ്വദേശി അ ബദുൾ കബീറിനെയാണ് തലശ്ശേരി കോടതി ശിക്ഷിച്ചത്

ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് പത്തുവർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും എന്ന കണക്കിലാണ് ശിക്ഷ അറബ് മാന്ത്രിക ചികിത്സയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കളരി ത്തൊടി ഉസ്മാൻ ഹാജി മുസ്ലിയാരെ വടകരയിൽ പൊലീസ് അറസ്റ്റ് ചെയ്തു വടകര സ്വദേശിനി നൽകിയ പരാതിയിലാണ് അറസ്റ്റ് കാര്യ സാധ്യത്തിന് ഏഴ് ലക്ഷം രൂപ വാങ്ങിയതായും അത് നടക്കാത്തതിനെ തുടർന്ന് തുക തിരകെ ചോദിച്ചപ്പോൾ നൽകിയില്ലെന്നും കാണിച്ച് യുവതി നൽകിയ പരാതിയിലാണ് പൊലീസ് നടപടിയെടുത്തത് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും

ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടി സ്ഥാനത്തിലാണ് കോടതി നടപടി

സിബിഎസ്ഇ പരീക്ഷാ ഫലം മെയ് മൂന്നാം വാരം മാത്രമേ പ്രസി ദ്ധീകരിക്കൂവെന്ന് ഔദ്യോഗികമായി അറിയിച്ചു ഏപ്രിലിൽ പരീക്ഷാ ഫലം ഉണ്ടാകുമെന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം അടി സ്ഥാന രഹിതമാണെന്ന് ന്യൂഡൽഹിയിൽ സിബിഎസ്ഇ വൃക്തമാ ക്കി

ഇതിന് പുറമെ രണ്ട് ട്രെയി നുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിടുമെന്നും റെയിൽവെ അറിയിച്ചു